സാമൂഹിക അകലം പാലിച്ച് തൊഴിലുറപ്പ് പദ്ധതിക് നട്ട്പ്പാക്കാം

പൂരം ചടങ്ങ് മാത്രമായി നടത്തും തൃശൂർപൂരം പൂർണ്ണമായും റദ്ദാക്കുന്നത് ചരിത്രത്തിലാദൃം

മരണസംഖ്യ ഒന്നേകാൽ ലക്ഷത്തിലധികമായി

രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരും മരണവും മഹാരാഷ്ട്രയിലാണ്

ഹോട്ട്സ്പോട്ടായി വിലയിരുത്തുന്ന പ്രദേശങ്ങളിലൊന്നും ഇളവുകൾ ബാധകമല്ല പുതിയ മാർഗ്ഗരേഖ സംസ്ഥാനങ്ങൾക്ക് കൈമാറി

പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കില്ലെങ്കിലും ചരക്കുഗതാഗതത്തിന് അനുമതിയുണ്ട്

എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല

സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക ഇളവുകൾ നൽകരുതെന്നും കേന്ദ്രം കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി തോമസ് ഐസക് ഇൻട്രോ ലോക്ക്ഡൌൺ നീട്ടിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നാളെ നടക്കുന്ന സംസ്ഥാന മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്ന് മന്ത്രി തോമസ് ഐസക് അറിയിച്ചു ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകളെ കുറിച്ചുള്ള കാര്യങ്ങളും യോഗം ചർച്ചു ചെയ്യും കേന്ദ്ര ചട്ടക്കൂടിനുള്ളിൽ നിന്ന് കേരളം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചിട്ട് മദ്യനിരോധനം നീണ്ടുപോകുന്നതിൽ അപകടമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യത്തിൽ വിമർശനവും തർക്കവും ഒഴിവാക്കാനാണ് ഓൺലൈൻ മദ്യവിൽപ്പന വേണ്ടെന്ന് വച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

കോഴിക്കോട് ജില്ലയിലെ ര്ണ്ടുപേർക്കും കണ്ണൂർ ജില്ലയിലെ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

പൂരം ചടങ്ങ് മാത്രമായി നടത്തും മന്ത്രി വി

ആചാരാനുഷ്ഠാനങ്ങൾ അഞ്ചുപേർ മാത്രമായി നടത്തും ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല

ചരിത്രത്തിലാദ്യമായാണ് തൃശൂർപൂരം പൂർണ്ണമായും റദ്ദാക്കുന്നത്

പൊതു സ്ഥകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് കിടത്തി ചികിൽസാ സൌകര്യം സജ്ജമാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശ്യപ്പാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ദേശീയപാതയിലെ ബോഡിമെട്ട് അതിർത്തി ചെക്ക് പോസ്റ്റിൽ ചരക്കുവാഹനങ്ങൾ അണുനശീകരണം നടത്തിയശേഷം വിശദമായി പരിശോധിക്കുന്നുണ്ട്

രോഗികളുടെ വിവരങ്ങളുടെ പൂർണ്ണ അവകാശം സംസ്ഥാന സർക്കാരിനെന്നും കമ്പന്റി വൃക്തമാക്കി

അറസ്റ്റ് ചെയ്തു കൊച്ചി വെല്ലിങ്ടൺ ഐലന്റിൽ വിലക്കു ലംഘിച്ച് കുർബാന നടത്തിയതിന് വൈദികൻ അടക്കം ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റെല്ല മേരീസ് ചർച്ചിലാണ് സംഭവം ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായി പോലീസ് അറിയിച്ചു

കണ്ണൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

അതേസമയം ഇന്ന് നടക്കേണ്ടിയിരുന്ന കൊല്ലം പൂരം കൊറോണയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്

കാസർകോട് നിന്നും ആകാശവാണി പ്രതിനിധി പി

ചൈനയിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവർ റഷ്യയിൽ നിന്നെത്തുന്നവരാണെന്നാണ് റിപ്പോർട്ട്